സബർമതി ആശ്രമത്തിൽ നിന്നാരംഭിക്കുന്ന പദയാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു

കേരളത്തിലും ത്മിഴ്നാട്ടിലും പുതുച്ചേരിയിലും ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് ആരംഭിച്ചു

ആയിരത്തിലേറെ പേർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു

തുടക്കം

ഇന്ത്യയെ സ്വാതന്ത്രൃത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിക്കും മറ്റ് ധീര സേനാനികൾക്കും ആദരവ് അർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിന് തുടക്കമിട്ടു കൊണ്ട് സബർമതി ആശ്രമത്തിൽ നിന്നാരംഭിക്കുന്ന പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആഘോഷപരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകുന്നേരം നിർവഹിക്കും കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

വയനാട്ടിൽ മാനന്തവാടി ഗവ

എസ് ഓഡിറ്റോറിയത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള സംഗ്ലീത നാടക അക്കാദമിയും ചേർന്ന് പഴശ്ശിരാജ അനുസ്മരങ്ങളും പുസ്തകപ്രദർശനം സ്വാതന്ത്രൃസമരി സേനാനികളെയും ഗാന്ധിയന്മാരെയും ആദരിക്കൽ എന്നിവ ദേശഭക്തിഗാനങ്ങളും നാട്ൻപ്രാട്ടുകളും ഡോക്യുമെന്ററി പ്രദർശനവും സൈക്കിൾ ്ട് റിലിലും അമൃത മഹോത്സവത്തിന് തുടക്കമിട്ടുകൊണ്ട് വയന്നാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്

മുംബൈയിലെ ക്രാന്തി മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെ നിർവഹിക്കുന്നു

ലഖ്നൌവിലെ രക്തസാക്ഷി സ്മാരകത്തിലാണ് അമൃതമഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്

ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതിയും രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസ്ഥന തീയതിയും ഇന്നാണ്

ഡി

ഡി

കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന

സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന മണ്ഡലങ്ങളിൽ എൽ

എഫ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു

എന്നാൽ കേരളത്തിൽ രോഗബാധിതരുടെ ് എണ്ണം തുടർച്ചയായി കുറഞ്ഞു വരുന്നു

മഹാരാഷ്ട്രയിൽ രോഗവ്യാപനം രൂക്ഷമായ പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറേ അറിയിച്ചു കൂടുതൽ രോഗബാധിതരുളള നഗരങ്ങളിൽ രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറ് മണി വരെ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തും

ജൂലൈ നാലാം തീയതിയോടെ രാജ്യത്തെ പൂർണമായും സാധാരണ നിലയിലേക്ക് എത്തിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചുകോടിയിൽ സംബന്ധിക്കും